കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പുവെച്ചു സംസ്ഥാനത്തെ ദേവസ്ഥംബോർഡുകളിൽ മുന്നാക്ക സമു ദായങ്ങളിലെ സാമ്പത്തികമായി പിന്നീക്കം നിൽക്കുന്ന വർക്ക് പത്ത് ശതമാനം സംവരണം പ്രാബല്യത്തിലായി ലാവ്ലിൻ കേസിൽ ഹൈക്കോട്ടതി വിധിക്കെതിരായ അപ്പീ ലുകൾ ഇന്ന് സുപ്രീംകോടതിയിൽ ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് എഫ്സി പൂണെ സിറ്റിയെ നേരിടും എറണാകുളം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഇന്ന് തുടക്കം കേന്ദ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ നടപ്പാക്കാൻ സംസ്ഥാന ഗവ കേന്ദ്രവു മായി ധാരണാപ്പത്രം ഒപ്പുവെച്ചു

ഇന്ദുഭൂഷൺ ഡൽഹിയിൽ അറിയിച്ചു പഞ്ചാബ് ഡെൽഹി തെലങ്കാന സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇനിയും ധാരണാപത്രം ഒപ്പിടാത്തത്

സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളിൽ മുന്നാക്ക സമു ദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം പ്രബലൃത്തിലാക്കുന്ന പ്രത്യേക ചട്ട ത്തിന് ഗവ അംഗീകാരം നൽകി തിരുവിതാംകൂർ കൊച്ചി ഗുരു വായൂർ കൂടൽമാണിക്യം ദേവസ്വം ബോർഡുകളിലാണ് പത്ത് ശതമാനം സംവരണം സാമ്പത്തിക പിന്നാക്കാവസ്ഥയുടെ പരിധി ഓരോ സമയത്തും ദേവസ്ഥ റിക്രൂട്ട്മെന്റ് ബോർഡുമായി ദേവസം ബോർഡുകൾ ആലോചിച്ച് തീരുമാനിക്കണമെന്ന് ഗവ നിർദേശിച്ചു ലാവ്ലിൻ കേസിൽ ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീ ലുകൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും മുഖ്യമന്ത്രി പിണ റായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പ്പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ സിബിഐ ്നൽകിയ ഹർജിയും ഹൈക്കോടതിവിധി ചോദ്യം ചെയ്ത് മുൻ കെപിസിസി പ്രസി ഡന്റ് വി എം സുധീരൻ നൽകിയ് ഹർജിയും സുപ്രീംകോടതി യിലുണ്ട് ഹൈക്കോടതി നിർദ്ദേ്ശിച്ച മൂന്ന് പേർക്ക് പുറമെ പിണ റായി വിജയനടക്കം പ്രട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ മൂന്ന് പേരും വിചാരണ നേരിട്ടണമെന്നാണ് സിബിഐയുടെ വാദം വിചാരണ് നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ കെ ജി രാജശ്രേഖരൻനായർ ആർ ശിവദാസൻ കസ്തൂരിരംഗ അയ്യർ എന്നിവരാണ് അപ്പീൽ നൽകിയത് ക്രിമിനൽ കേസുകളിൽ കുറ്റവാളികളായി ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജീവിതകാലം മുഴുവൻ തെരഞ്ഞെടു പ്പിൽ വിലക്ക് ഏർപ്പെടുത്തണമെന്ന പൊതുതാൽപര്യഹർജി ഡിസംബർ നാലിന് പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയി ച്ചു ഗവൺമെന്റ് ജീവനക്കാർക്കോ ജുഡീഷ്യൽ ഓഫീ സർമാർക്കോ ക്രിമിനൽകേസിൽ ശിക്ഷ അനുഭവിച്ചശേഷം തിരികെ ജോലിയിൽ പ്രവേശിക്കാനാവില്ല ഇതിനോട് ചേർത്തു വെക്കാവുന്നതാണ് ജനപ്രതിനിധികളുടെ വിഷയമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന കേസുകൾ വേഗ ത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക കോടതികൾ വേണമെന്ന ആവ ശ്യവും ഹർജിയിലുണ്ട് തുലാമാസ പൂജാവേളയിൽ ശബരിമലയിൽ നിന്ന് കാണാ തായ ഭക്തന്റെ മൃതദേഹം പ്ലാപ്പളളിക്കടുത്ത് വനത്തിൽ കണ്ടെ ത്തി പന്തളം മുളമ്പുഴ സ്വദേശി ശിവദാസനെയാണ് മരിച്ചനില യിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും നില യ്ക്കലിലുണ്ടായ പൊലീസ് അക്രമത്തിൽ ഇയാൾ കൊല്ലപ്പെടു കയായിരുന്നുവെന്നും ബിജെപിയും ശബരിമല ക്ർമസമിതിയും ആരോപിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് പത്തനംതിട്ടയിൽ ആഹ്വാനം ചെയ്ത പകൽ ഹർത്താൽ തുടങ്ങി ശബരിമലയിൽ പൊലീസ് നടപടികൾക്കിടെയാണ് അയ്യപ്പഭ ക്തൻ മരിച്ചതെന്ന പ്രചാരണം അടിസ്ഥാനർഹിതമാണെന്ന് പത്ത നംതിട്ട ജില്ലാപൊലീസ് മേധാവി ടി നാരായണൻ അറിയിച്ചു

ബൊഫേഴ്സ് കേസിലെ പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഡൽഹി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സിബിഐ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും

സുപ്രീംകോടതിയിൽ നാല് പുതിയ ജഡ്ജിമാരെ നിയമിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിച്ചു മധ്യപ്രദേശ് ഗുജറാ ത്ത് പാറ്റ്ന ത്രിപുര ഹോക്കോടതി ചീഫ് ജസ്റ്റിസുമാരായ ഹേമന്ത് ഗുപ്ത ആർ സുഭാഷ്റെഡ്സി എം ആർഷാ അജയ് റ സ്തോഗ് എന്നിവരെയാണ് സുപ്രീംകോടതി ജഡ്ജിമാരായി നിയ മിച്ചത് കേരള ഹൈക്കോടതിയിൽ നാല് അഡീഷണൽ ജഡ്ജിമാരെ നിയമിച്ച് നിയമ മന്ത്രാലയം വിജ്ഞാപനം ഇറക്കി ജില്ലാ ജഡ്ജി മാരായ ടി വി അനിൽകുമാർ എൻ അനിൽകുമാർ അഭിഭാഷ കരായ വി ജി അരുൺ എൻ നഗരേഷ് എന്നിവരെയാണ് അഡീഷണൽ ജഡ്ജിമാരായി നിയമിച്ചത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് എഫ് സി പൂണസിറ്റിയെ നേരിടും രാത്രി ഏഴരക്ക് പൂണെ ശ്രീശിവ് ഛത്രപതി സ്പോർട്സ് കോംപ്ലക്സ്റ്റിലാണ് മത്സരം നാല് കളികളിൽ ഒരു ജയവും മൂന്ന് സമനില്യുമായി ഏഴാമ താണ് ബ്ലാസ്റ്റേഴ്സ് മൂന്ന് തോൽവികളും ഒരു സ്നമനിലയുമായി പോയിന്റ് പട്ടികയിൽ പൂണെ അവസ്ഥാനക്കാരാണ്

നിലവിൽ ഹരിയാനയാണ് ചാമ്പ്യൻമാർ

തിരുവന്തപുരത്ത് രഞ്ജിട്രോഫി ക്രിക്കറ്റിലെ ആദ്യമത്സ രത്തിൽ ഹൈദരാബാദിനെതിരെ കേരളം മികച്ച നിലയിൽ

സച്ചിൻബേബിയും വിഎ ജഗദീഷുമാണ് പുറത്താകാതെ നിൽക്കുന്നത് കോഴിക്കോട് നടക്കുന്ന അഖിലേന്ത്യാ തപാൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കേരളം ഇന്ന് പശ്ചിമബംഗാളിനെ നേരിടും സെമിയിൽ കേരളം മറുപടിയില്ലാത്ത മൂന്ന് ഗോളിന് കർണാടകയേയും ബംഗാൾ ഒരു ഗോളിന് തമിഴ്നാടിനെയും കീഴടക്കി ദക്ഷിണ മേഖല ഇന്റർ സ്കൂൾ ബാസ്ക്കറ്റ് ബോൾ ചാമ്പൃൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് തുടങ്ങും

എറണാകുളം അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇന്ന് പ്രതി പക്ഷനേതാവ് രമേശ് ചെന്നിത്തല എറണാകുളത്തപ്പൻ ഗ്രൌണ്ടിൽ ഉദ്ഘാടനം ചെയ്യും

ഇതിന്റെ ഭാഗമായി കേന്ദ്ര വികസന്ദക്ഷേമ പദ്ധതികളെ കുറിച്ച് റീജ്യണൽ ഔട്ട്റീച്ച് ബ്യൂറോയ്യുടെ പത്ത് ദിവസത്തെ പ്രദർശനം പ്രൊഫ കെ വി തോമസ് എംപി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ പയ്യാമ്പലത്ത് നിർമിക്കുന്ന പുതിയ പാർക്കിനെ കേന്ദ്ര ഗവ ന്റെ അമൃത്ചപദ്ധതിയിലുൾപ്പെടുത്താൻ കോർപ്പ റേഷൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു

സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളപ്പിറവി ദിനം മുതൽ ശിശ്ദ്ദിനം വരെ എല്ലാ ജില്ലകളിലും നടത്തുന്ന പരി പാടികൾക്ക് കാസർക്കോട് തുടക്കമായി ഇന്ന് കണ്ണൂർ ജില്ല യിലെ തലശ്ശേരിയിൽ നടക്കുന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പളളി ഉദ്ഘാടനം ചെയ്യും

നാളെ വയ നാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ് പരിപാടി മാനവ സൌഹൃദത്തിന്റെ സന്ദേശം പുണ്യ സങ്കേതമാണ് പരുമലയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു പരു മല പെരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടക സംഗമത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാനവസ മൂഹത്തിന്റെ ഐക്യം കാലത്തിന്റെ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു പെരുന്നാൾ ഇന്ന് സമാപിക്കും ഐ ജി മനോജ് അബ്രഹാമിനെതിരെ മോശം പരാമർശം നട ത്തിയെന്ന കേസിൽ ബിജെപി സംസ്ഥാന വക്താവ് ബി ഗോപാ ലകൃഷ്ണനെ പൊലീസ് അറസ്റ്റ് ചെയ്തു

അറസ്റ്റ് രേഖപ്പെടുത്തിശേഷം സ്റ്റേഷൻ ജാമൃത്തിൽ ഗോപാല കൃഷ്ണനെ പൊലീസ് വിട്ടയച്ചു

കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്ന ഡിസംബർ ഒമ്പതിന് എയർഇന്ത്യ എക്സ്പ്രസ് കമ്പനിയുടെ വിമാനങ്ങൾ ആദ്യയാത്ര നടത്തും

അബൂദ്ദാ്ബിയിലേക്കും തിരിച്ചുമാണ് ആദ്യസർവീസുകൾ കൊച്ചി മെട്രോയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടി യെടുത്ത കേസിൽ മൂന്നു പേരം തിരുവല്ലയിൽ പൊലീസ് അറസ്റ്റ് ചെയ്തു ഇലവൂതിട്ട് സ്വദേശി ശ്യാംജി സുഹൃത്ത് സുനിൽകുമാർ സുഹൃത്തിന്റെ ഭാര്യ ശ്രീജ എന്നിവരാണ് അറസ്റ്റിലായത് നിർമാണം പുരോഗമിക്കുന്ന കോട്ടയം നാഗമ്പടം പുതിയ റെയിൽവെ മേൽപ്പാലം താൽക്കാലികാടിസ്ഥാനത്തിൽ പൂർണ മായി തുറന്നു ഇന്നലെ രാത്രി മുതൽ ഇരു ഭാഗത്തുനിന്നും എല്ലാ വാഹനങ്ങൾക്കും മേൽപാതയിലൂടെ ഗതാഗതം അനുവദിച്ചു അടുത്തയാഴ്ച പാലത്തിന്റെ ടാറിംഗ് ജോലികൾ ആരംഭിക്കു മെന്ന് റെയിൽവെ അധികൃതർ അറിയിച്ചു

ഇവരിൽ രണ്ടുപേർ ഹരി യാനക്കാരും രണ്ടുപേർ രാജസ്ഥാൻകാരുമാണെന്നാണ് വിവ രം കൊരട്ടി എ ടി എം കവർച്ചക്ക് പിന്നിലും ഇവർതന്നെയാ ണെന്നാണ് പൊലീസ് കരുതുന്നത്

കുട്ടികൾക്ക് മികച്ച സാമൂഹ്യ സാഹചര്യം ഒരുക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കൂടി കടമയാണെന്ന് ജോയ്സ് ജോർജ്ജ് എം പി പറഞ്ഞു സംസ്ഥാന ബാലാവകാശ സ്യർക്ഷണ കമ്മീ ഷൻ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച ബോധവൽക്ക്രണ ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ്മീഡിയം ഗവ ഹൈസ്കൂ ളിൽ അനുവദിച്ച സ്റ്റുഡന്റ് പൊലീസ് കാഡറ്റ് പദ്ധതിയും ജോയ്സ് ജോർജ്ജ് ഉദ്ഘാടനം ചെയ്തു വൈക്കം എറണാകുളം ജലപാതയിൽ മറ്റന്നാൾ സർവീസ് ആരംഭിക്കുന്ന എ സി ബോട്ട് പ്രീക്ഷണ ഓട്ടം നടത്തി

എറണാകുളത്തിനും ഷൊർണൂരിനും ഇടയിൽ ട്രാക്ക് അറ്റ കുറ്റപണിക്ളെ ്തുടർന്ന് നാളെയും മറ്റന്നാളും മംഗലാപുരം നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് ഷൊർണൂരും നാഗർകോവിൽ മംഗലാപുരം പരശുറാം എറണാകുളത്തും സർവീസ് അവസാനിപ്പിക്കുമെന്ന് റെയിൽവെ അറിയിച്ചു ഈ മാസത്തെ എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും പര ശുറാം സർവീസുകൾ ഷൊർണൂരും എറണാകുളത്തും അവ സാനിപ്പിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു